സമരസ്സമിതിയുമായി നേരിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷനേതാ വ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച സത്യഗ്രഹികളെ സിപിഐഎം രാഷ്ട്രീയ മാന്യതയില്ലാതെ അപമാനിച്ചെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിളള

ശബരിമല ക്റേറിയ രണ്ട് യുവതികൾക്ക് മതിയായ സുരക്ഷ ക നൽകാൻ സുപ്രീംകോടതി നിർദേശം

ആലപ്പാട്ട് കരിമണൽ ഖനനത്തിനെതിരെ സമരം തുടരുന്നത് ദൌർഭാഗൃക്രമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകു മെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറ ഞ്ഞു സീ വാഷിംഗ് നിർത്തണം വിദഗ്ധ സമിതി ഖനനം പരിശോ ധിക്കണം തുടങ്ങി സമരസമിതി ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ചർച്ചയിൽ ഗവ

രണ്ട് പ്രധാന വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്കെത്തുന്നത് നിസ്സാരമായി കാണാ നാവില്ലെന്ന് മന്ത്രി പറഞ്ഞു വൃവസായങ്ങൾ പൂട്ടുക എന്ന സമര ക്കാരുടെ മനോഭാവം ശരിയല്ല ഖനന വിഷയത്തിൽ ഗവ സ്വീക രിച്ച നിലപാടാണ് ശരിയെന്ന് താമസിയാതെ എല്ലാവർക്കും ബോധ്യമാവുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു സമരസമിതിയുമായി ഇനിയും ചർച്ചക്ക് തയ്യാറാണെന്നും ആലപ്പാട് സന്ദർശിക്കുമെന്നും ജയരാജൻ പറഞ്ഞു ആലപ്പാട് കരിമണൽ ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണ റായി വിജയൻ സമരസമിതിയുമായി നേരിട്ട് ച്ടർച്ച് നടത്തണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആവ്ശ്യപ്പെട്ടു് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സമരത്തിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ചെന്നിത്തല വ്യക്തമാക്കി ഖനനത്തിനെതിരെ സമരം നടത്തുന്ന ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി കെ എം ഷാജിയുടെയും കാരാട്ട് റസാഖിന്റെയും തെരഞ്ഞെ ടുപ്പുകൾ ഹൈക്കോട്തി അസാധുവാക്കിയത് താരതമൃം ചെയ്യാ നാവില്ലെന്ന് മന്ത്രി ഡോ

രണ്ടു കേസുക ളിലേയൂം പിധി ഒന്നല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തക്കരെ അറിയിച്ചു ഷാജിയുടെ കേസിലെ വിഷയം വർഗീയതയുമായി ബന്ധ പ്പെട്ടതാണെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് റസാഖിന്റെ കാര്യത്തിലുണ്ടായതെന്നും ജലീൽ വൃക്തമാക്കി കോഴിക്കോട്ട് നാളെ ഉദ്ഘാടനം ചെയ്യുന്ന വഖഫ് ട്രൈബ്യൂ ണലിൽ നിഷ്പക്ഷരെയാണ് നിയമിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറ ഞ്ഞു ട്രൈബ്യൂണൽ ചെയർമാൻ ജില്ലാ ജഡ്ജിയും ഒരംഗം എഡിഎം റാങ്കിലുളള ആളുമാണ് നിയമനങ്ങളെ കുറിച്ച് പരാതി ഉന്നയിച്ച സമസ്തയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാ ക്കി സെക്രട്ടറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച സത്യ ഗ്രഹികളെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളും രാഷ്ട്രീയ മാനൃതയില്ലാതെ അപമാനിച്ചതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിളള കുറ്റപ്പെടുത്തി വർഷങ്ങളായി രാഷ്ട്രീയ ത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന നേതാക്കളെ അറി യപ്പെടാത്തവരായി ചിത്രീകരിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ബിജെപി ദേശീയ ന്ദിർവാഹകസമിതി അംഗം പി കെ കൃഷ്ണദാസ് നിരാഹാര സമർം ഇന്നാരംഭിക്കും

ആലപ്പാട്ട് കരിമണൽ ഖനനം എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും

ഇക്കാര്യത്തിൽ സന്നദ്ധ സംഘ ടനകൾ വഴി സൌകര്യമൊരുക്കാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ അനു മതി ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ നയത്തിന്റെ ഭാഗമായി അവരുടെ ആരോഗൃപ്രശ്നങ്ങൾ ലഘൂകരിക്കാനും മാന സിക പിന്തുണ നൽകാനുമാണ് ചികിത്സാ കാലയളവിൽതാമസ സൌകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ശബരിമലയിൽ ദർശനം നടത്തിയ രണ്ട് യുവതികൾക്ക് സംര ക്ഷണം നൽകാൻ സുപ്രീംകോടതി സംസ്ഥാന ഗവൺമെന്റിന് നിർദേശം നൽകി മുഴുവൻ സമയ സംരക്ഷണം ആവശൃപ്പെട്ട് ക നകദുർഗ്ഗയും ബിന്ദുവും സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയി നേതൃത്വം നൽകുന്ന ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹർജിയിൽ ഉന്നയിച്ച മറ്റു കാര്യങ്ങൾ പുനപരിശോധനാ ഹർജികളുടെ പരിഗണനാവേളയിൽ കണക്കിലെടുക്കാമെന്ന് കോടതി പറഞ്ഞു സംസ്ഥാനത്ത് വഖഫ് സംബന്ധിച്ച തർക്കങ്ങളിൽ പരിഹാരം കാണാൻ മൂന്നംഗ ട്രിബ്യൂണൽ നിലവിൽ വരും കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പുതിയ ട്രിബ്യൂണലിന്റെ ഓഫീസ് നാളെ രാവിലെ മന്ത്രി ഡോ

പാർലമെന്റ് വഖഫ് ആക്ടിൽ വരുത്തിയ ഭേദ്രഗ്തിയുടെ അടി സ്ഥാനത്തിലാണ് പുതിയ മൂന്നംഗ ട്രിബ്യൂണ്ൽ രൂപീകരിക്കുന്ന ത്

കോഴിക്കോട്ടെ മൂന്നംഗ ട്രിബ്യൂണൽ യാഥാർത്ഥ്യ മാകൂന്ന തോടെ മറ്റുളളവയുടെ പ്രവർത്തനം അവസാനിപ്പിക്കും ദേശീയ പണിമുടക്ക് ദിനത്തിൽ തിരുവനന്തപുരത്ത് എസ് ബി ഐ ബാങ്ക് അക്രമിച്ച കേസിൽ മൂന്ന് എൻജിഒ യൂണിയൻ നേതാ ക്കളെ കൂടി സർവീസിൽ നിന്ന് സസ്പെന്റ് ചെയ്തു കേസിൽ അറസ്റ്റിലായ എൻ ജീഒ യൂണിയൻ സംസ്ഥാനകമ്മിറ്റി അംഗം സുരേഷ്ബാബു തിരുവനന്തപുരം ജില്ലാ നേതാക്കളായ സുരേഷ്കു മാർ ശ്രീപത്സൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് നേരത്തെ രണ്ട് പേർ സസ്പെൻഷനിലായിരുന്നു കർണാടകത്തിൽ കോൺഗ്രസ് നിയമസഭാകക്ഷിയോഗം ഉച്ച കഴിഞ്ഞ് ചേരും പാർട്ടി എം എൽ എ മാരെ ബിജെപിയിലേക്ക് കൂറുമാറ്റുന്നുവെന്ന ആരോപണത്തിനിടയിലാണ് നിർണായക യോഗം ചേരുന്നത് എല്ലാ എം എൽ എ മാരും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പാർട്ടി നിയമസഭാകക്ഷിനേതാവ് സിദ്ധ രാമയ്യ വിപ്പ് നൽകിയിട്ടുണ്ട് പങ്കെടുക്കാത്തവരെ കൂറുമാറ്റ നിരോധന നിയമ പ്രകാരം അയോഗ്യരാക്കുമെന്നും സിദ്ധരാമയ്യ അറിയിച്ചു

കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരാണ് സുപ്രീംകോടതി ജഡ്ജി മാരായി ചുമതലയേറ്റത്

മൂന്ന് ഒഴിവുകൾ കൂടി നികത്താനുണ്ട് കേന്ദ്ര കുടിവെള്ള ശുചിത്വ മന്ത്രാലയം സ്വച്ച്ഭാരത് മിഷന്റെ ഭാഗമായി സ്വച് സുന്ദർ ശൌചാലായ മത്സര് കാമ്പയിൻ സംഘടിപ്പിക്കുന്നു

ഇതിന്റെ ഭാഗമായി കുടുംബങ്ങൾക്ക് ശൌചാലയങ്ങളിൽ ചിത്രങ്ങളും സ്വച്ചഭരത് മിഷൻ സന്ദേശങ്ങളും ഉൾപ്പെടുത്തി പെയിന്റ് ചെയ്തു മത്സരത്തിൽ പങ്കെടുക്കാം കൂടുതൽ ശൌചാലയങ്ങൾ പെയിന്റ്ചെയ്ത് പഞ്ചായത്തുകൾക്ക് പുരസ് കാരങ്ങൾ നൽകും ജമ്മു കശ്മീരില്ലെ ലഡാക്കിൽ വാഹനത്തിന് മുകളിലേക്ക് മഞ്ഞ് വീണ് പിത്ത് പേരെ കാണാതായി

പൊലീസും ദുരന്തനിവാരണ സേനയും ഇവരെ കണ്ടെത്തുന്നതിന് ശ്രമം തുടരുകയാണ്

ചഹൽ ആറ് വിക്കറ്റ് വീഴ്ത്തി ഇന്ന് ജയിക്കുന്ന ടീം പരമ്പര സ്വന്തമാക്കും വടക്കൻ കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളി ലൊന്നായ ബേപ്പൂരിൽ ബോട്ടുകളടുക്കുന്ന വാർഫ് ബേസിൻ ആഴം കൂട്ടുന്നതിന് ഡ്രഡ്ജിങ് പ്രവൃത്തികൾ അടുത്തയാഴ്ച തുട ങ്ങും പരമ്പരാഗത വള്ളങ്ങൾക്ക് ഹാർബറിലടുക്കാൻ പ്രത്യേക ലോ ലെവൽ ജെട്ടി നിർമാണത്തിന് ടെന്റർ നടപടികളായിട്ടുണ്ട് ഹാർബറിന്റെ സമഗ്ര വികസനത്തിന് ഹാർബർ എഞ്ചീനിയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും അടി സ്ഥാന ഭൌതിക സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധ തികൾക്കായിരിക്കും മാസ്റ്റർപ്സാനിൽ മുൻഗണന നൽകുകയെന്ന് അധികൃതർ അറിയിച്ചു

ഓർത്ത ഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹ്ന്നാൻ മാർ മിലി ത്തിയോസിനെ ഒന്നാം പ്രതിയാക്കിയാണ് ജാമ്യമില്ലാ് വകുപ്പുകള നുസരിച്ച് കേസെടുത്തത്

പളളിയിൽ നിന്ന് പുറത്തുവന്ന് യാക്കോബായ സഭ വിശ്വാ സികളെയും അറസ്റ്റു ചെയ്തിട്ടൂണ്ട്

അതിനിടെ ഇരുവിഭാഗവുമായും പ്രശ്നപരിഹാരത്തിന് ജില്ലാ കലക്ടർ ചർച്ച ആരംഭിച്ചു

സ്വർണം കടത്തിയ പ്ട്ടാമ്പി സ്വദേശി വിനീഷിനെയും സ്വർണം വിൽക്കാൻ ശ്രമിച്ച മണ്ണാർക്കാട് സ്വദേശി മുജീബ് റഹ്മാനെയും അറസ്റ്റ് ചെയ്തു സ്പീക്കറിനകത്ത് ഒളിപ്പിച്ചു കടത്തിയ സ്വർണം വിമാന ത്താവളത്തിലെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നില്ല രണ്ടു ദിവസത്തെ കേരള പ്രവാസി സംഘം അഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി പ്രതിനിധി സമ്മേളനം രാവിലെ മന്ത്രി ഡോ

നാളെ വൈകീട്ട് പൊതുമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാ ടനം ചെയ്യും സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായി സംസ്ഥാന ഗവ ആരംഭിക്കുന്ന സൈബർ ഡോമിൽ വളണ്ടിയർമാർക്ക് പരി ശീലനം തുടങ്ങി കോഴിക്കോട്ട് ഗവ സൈബർ പാർക്കിൽ സിറ്റി പൊലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദീൻ ഉദ്ഘാടനം ചെയ്തു സൈബർ മേഖലയുമായി ബന്ധപ്പെട്ട് പൊലീസിനെ സഹാ യിക്കാൻ ഐ ടി വിദഗ്ധരെയാണ് വളണ്ടിയർമാരായി തിരഞ്ഞെടു ക്കുന്നത് അടുത്തമാസത്തോടെ സൈബർഡോം പ്രവർത്തനമാ രംഭിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മിഷൻ അംഗ്രം കെ

ഇടുക്കി കട്ടപ്പനയിൽ വർക്കിങ് വിമൻസ് ഹോസ്റ്റൽ അടുത്ത ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിക്കൂം് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും

ഇന്ധനവില് ഇന്നും വർധിച്ചു

കേരള നിയമസഭയും സംസ്ഥാന സാക്ഷരതാ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭരണഘടനാ സാക്ഷരതാ സന്ദേശ യാത്ര ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ പരൃടനം നടത്തും വൈകീട്ട് മണ്ണാർക്കാട് ആര്യപള്ളം നഗറിൽ ജില്ലയിലെ ആദ്യ സ്വീകരണ സമ്മേളനം എം

രാജേഷ് എം

ഉൽഘാടനം ചെയ്യും നാളെ രാവിലെ പാലക്കാട് ഇ

രാമസ്വാമി അയ്യർ നഗറിൽ നടക്കുന്ന സ്വീകരണ സമ്മേളന ത്തിന്റെ ഉൽഘാടനം മന്ത്രി കെ

അടച്ചു പൂട്ടൽ ഭീഷണിയെ അതിജീവിച്ച നടുവണ്ണൂർ ഗവ എം എൽ പി സ്കൂളിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ ക്ലാസ്സ് റൂമുകളുടെ ഉദ്ഘാ ടനം മറ്റന്നാൾ നടക്കും ഉച്ചകഴിഞ്ഞ് പുരുഷൻ കടലുണ്ടി എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ഊർജ്ജകേരള മിഷന്റെ ഭാഗമായി പുരപ്പുറത്ത് സൌരോർജ്ജ പാനൽ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതി കരണം